യു

ഇതേ തുടർന്ന് ബെഞ്ചിലെ അംഗങ്ങളായ മറ്റ് ജഡ്ജിമാരുമായി ചീഫ് ജസ്റ്റിസ് കൂടിയാലോചന നടത്തി പുനപരിശോധനാ ഹർജികളും പുതുതായി സമർപ്പിക്കപ്പെട്ട റിട്ടുകളും എപ്പോൾ പരിഗണിക്കണമെന്ന് നാളെ തീരുമാനിക്കുമെന്ന് പിന്നീട് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു